ബി

നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘൃമേറിയ ചന്ദ്രഗ്രഹണം നാളെ ദൃശ്യമാകും

ഉച്ചകോടിയുടെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പൂടിൻ തുടങ്ങിയവരുമായി ശ്രീ

അന്താരാഷ്ട്രസമാധാനവും സുരക്ഷയും ഭരണനിർവ്വഹണം വ്യാപാര പ്രശ്നങ്ങൾ തുടങ്ങിയ ഗൌരവപ്പ്രമായ് ആഗോള വിഷയങ്ങളെല്ലാം ഉച്ചകോടിയിൽ ചർച്ചയാകും

മൂന്ന് ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെ പ്രബിക്സ് ബിസിനസ് ഫോറം മീറ്റോടെ തുടക്കമായി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി മറ്റ് നാല് രാഷ്ട്രത്തലവൻമാരുമായും ഉഭയകക്ഷിചർച്ചയും നടത്തും

യുദ്ധത്തിൽ ജീവതൃാഗം ചെയ്തവർക്ക് രാഷ്ട്രം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു കുടുതൽ വിവരങ്ങളുമായി പ്രിയ

ധീര ജവാൻമാരുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമാണെന്നും സമാധാനന്തരീക്ഷം തകർക്കുന്നവർക്ക് സൈനൃം തക്ക മറുപടി നൽകുമെന്ന സൂചനയാണ് കാർഗിൽ യുദ്ധത്തിലൂടെ നൽകിയതെന്നും പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു കാർഗിൽ യുദ്ധവിജയത്തിന് പിന്നിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി വഹിച്ച നേതൃപരമായ പങ്കിനെയും ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശപാണി

കശ്മീരിലെ ദ്രാസ് യുദ്ധ സ്മാരകത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബൽബീർ സിംഗ് അഭിപ്രായപ്പെട്ടു

വിവിധ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക വരൾച്ച സ്ഥിതിയെക്കുറിച്ച് ലോക്സഭയിൽ നടത്തിയ ചർച്ചയ്ക്ക് മറുപടി നൽകിയ ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവാണ് ഈ ഉറപ്പ് നൽകിയത് ഫണ്ട് വിതരണത്തിൽ ഒരു സംസ്ഥാനത്തോടും വിവേചനം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു വെള്ളപ്പൊക്ക ദുരന്തം നേരിടുന്ന കേരളത്തിലെ സ്ഥിതി വിലയിരുത്താൻ ഈ ആഴ്ച തന്നെ മന്ത്രിതല സംഘം സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ വൃാപാരികളുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതുസംബന്ധിച്ച് ഉപഭോക്തൃകാര്യമന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ചില്ലറ വ്യാപാര മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതോടൊപ്പം ചെറുകിട വ്യാപാരികളുടെ താൽപരൃങ്ങൾ സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു

സമീപ പ്രദേശമായ കോപ്പർ കൈയാനിൽ ഉണ്ടായ അക്രമം കൂടി കണക്കിലെടുത്താണ് നടപടി പ്രദേശത്ത് ഇപ്പോഴും ആശങ്കാജനകമായ സ്ഥിതി തുടരുകയാണ്

ശനിയാഴ്ചയോടെ ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുന്ന ബോട്ടുകൾ നടപ്പടി ക്ര്മങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചയയ്ക്കും

ബി ഐ അന്വേഷണത്തിന് ഗവൺമെന്റ് ഉത്തരവിട്ടു സംഭവത്തിൽ നിക്ഷ്പക്ഷമായ അമ്പേഷണം നടത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി നിതീഷ്കുമാർ പറഞ്ഞു

ബി

ചന്ദ്രഗ്രഹണം കാണുന്നതിന് രാജ്യമൊട്ടാകെ പൊതുജനങ്ങൾക്കായി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഫലപ്രഖ്യാപനം സാങ്കേതിക കാരണങ്ങളാൽ വൈകുമെന്ന് പാക്കിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

സാങ്കേതിക തകരാറുകൾ മൂലം വോട്ടെണ്ണൽ വൈകുന്നതായാണ് റിപ്പോർട്ട് വോട്ടെടൂപ്പിൽ ക്രമക്കേട് ആരോപിച്ച് നവാസ് ഷെരീഫിന്റെ പാകിസ്താൻ മുസ്ലിം ലീഗ് അടക്കം പല കക്ഷികളും തിരഞ്ഞെടുപ്പ് ഫലം ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ചു എന്നാൽ ഒരു തരത്തിലുമുള്ള അട്ടിമറിയും നടന്നിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരുന്നെന്നും തിരഞ്ഞെടുപ്പു കമ്മീഷൻ വൃക്തമാക്കി

വൻ സുരക്ഷയിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദക്ഷിണ കാശ്മീരിലെ ബദ്ഗാം അനന്ത് നാഗ് കാസി ഗുണ്ട് റൂട്ടിലുള്ള ട്രെയിൻ സർവീസാണ് ഓടിത്തുടങ്ങുന്നത് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് ലഷ്കർ ഇ തോയ്ബ ഭീകരർ മരിച്ചതിനെ തുടർന്ന് ഇന്നലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെയ്ക്കുകയായിരുന്നു

ദേശീയപാതയിലെ സോജില യിൽ ഇന്നലെ ഉണ്ടായ മഴയിലും മണ്ണിടിച്ചിലിലും ഒരു കുട്ടി മരിച്ചിരുന്നു കശ്മീർ താഴ്വരയെ ലഡാക് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡാണ് ഈ ദേശീയപാത

റസ്വാ ജില്ലയിലെ തിമൂർ മേഖല്ലയിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി പി

മുഹമ്മദ് റിഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു

ബി അക്രമിസംഘത്തിൽപ്പെട്ട പള്ളുരുത്തി സ്വദേശി സനീഷിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു

ശനിയാഴ്ച നട്ണ് ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ഇന്ത്യയെ സമനിലയിൽ കുരുക്കിയിരുന്നു

ചെന്നൈയിൽ നടക്കുന്ന പ്രീക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ന് വൈകുന്നേരം ഇന്ത്യ പാക്കിസ്ഥാനുമായി ഏറ്റുമുട്ടും ടോപ് സീഡായ ഈജിപ്റ്റ് അർജന്റീനയെ ഇന്ന് നേരിടും